പാകിസ്ഥാനിൽ അഭയം തേടാൻ സഹായിച്ചവരെ എത്രയും പെട്ടെന്ന് തുറന്ന് കാട്ടുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

ഇന്ത്യയ്ക്കും ബംഗ്ലാദേശിനും ഇടയിലുള്ള എല്ലാ റെയിൽപാതകളും വീണ്ടും തുറക്കുമെന്ന് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന

നേവി മുംബൈയിലെ കർഖറിൽ തെരഞ്ഞെടുപ്പ് പൊതുസമ്മേളനത്തെഅഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം രക്ഷപ്പെടാൻ ഈ കുറ്റവാളികളെ സഹായിച്ചവർആരൊക്കെയാണെന്നുംഇവർക്ക്കുറ്റവാളികളുമായുള്ള വ്യാപാരവാണിജ്യ ബന്ധങ്ങളെക്കുറിച്ചും ജനങ്ങൾക്ക് ആശങ്കകളുണ്ടെന്നും ശ്രീ

മുംബൈ സ്ഫോടനത്തിനുശേഷം ദാവിദ് ഇബ്രാഹിം ടൈഗർ മേമൻ തുടങ്ങിയ മുഖ്യ പ്രതികൾ രാജ്യം വിട്ട് പാക്കിസ്ഥാനിൽ അഭയം തേടിയിട്ടുണ്ട് അന്നത്തെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ശരത് പവാറിന്റെ നേതൃത്വത്തിലുള്ളഗവൺമെന്റ് അധോലോകവുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്നതായി അന്ന് പ്രതീപ്പുക്ഷം ആരോപിച്ചിരുന്നു

എന്നാൽ ഇവരുടെ ചെയ്തികൾക്കുള്ള മറുപടി ജനങ്ങൾ ആവശ്യപ്പെടുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

തെരഞ്ഞെടുപ്പിന് മൂന്ന് ദിവസം മാത്രം ശേഷിക്കെ മഹാരാഷ്ട്രയിലും ഹരിയാനയിലും രാഷ്ട്രീയ നേതാക്കൾ വ്യാപകമായ പ്രചാരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഹരിയാനയിൽ പ്രാദ്ദേശിക ദേശീയ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിയുള്ള പ്രചാരണം നടത്തുന്ന ബിജെപി കോൺഗ്രസ് ഐ

എൽ

സി

സംസ്ഥാനത്ത് പ്രചാരണം നടത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്ര മോദിഇന്ന് പൂനെ സത്താര പാർലി എന്നിവിടങ്ങളിൽ പ്രചാരണം നടത്തും

എം സി

ഹൌസിംഗ് ഡെവലപ്മെന്റ് ഇൻഫ്രാ സ്ട്രക്ചർ ലിമിറ്റഡ് ചെയർമാനും എം ഡിയുമായ രാകേഷ് വധവാൻ മകൻ സാരംഗ് പി എം സി ബാങ്കിന്റെ മുൻ ചെയർമാൻ വാര്യം സിംഗ് എന്നിവരെയാണ് ഇന്നലെ കോടതിയിൽ ഫ്ട്രൂജരാക്കിയത് കള്ളപ്പണ കേസിൽ ആദ്യ രണ്ട് പ്തികളുടെയും കസ്റ്റഡി ആവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡ്യ്റ്റുക്ടറേറ്റ ്പിന്നീട് മുംബൈ പ്രത്യേക കോടതിയെ സമീപിച്ചു ഇഡിയോട് വേണ്ട നടപടികൾ പൂർത്തിയാക്കാൻ ആവശ്യപ്പെട്ട കോടതികേസ് മാറ്റി വച്ചു

എം

നിക്ഷേപകരെ ബഹുമാനിക്കുന്ന ജനാധിപത്യ അന്തരീക്ഷമാണ് ഒരു ഇന്തൃയിലുള്ളതെന്ന് ധനമന്ത്രി പറഞ്ഞു

എം എഫ് ആസ്ഥാനത്ത് ഇന്ത്യ യു എസ് നയതന്ത്ര പങ്കാളിത്ത ഫോറവുമായി സഹകരിച്ച് എഫ്

ഐ സംഘടിപ്പിച്ച യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു ശ്രീമതി സീതാരാമൻ അതിവേഗം വളരുന്ന സമ്പദ്ഘടനയാണ് ഇന്ത്യയുടേത് ലോകത്തെ മികച്ച മാനവശേഷിയും ഇവിടെയുണ്ട് പരിഷ്കരണങ്ങൾ കൊണ്ടു വരാൻ ഗവൺമെന്റ് തുടർച്ചയായ ശ്രമങ്ങൾ നടത്തുന്നുണ്ടെന്നും ധനമന്ത്രി അന്താരാഷ്ട്ര നിക്ഷേപകർക്ക് ഉറപ്പ് നൽകി

സാമ്പാ ജില്ലയിലെ സരോറിൽ സ്ഥാപിച്ച ടോൾ ബൂത്തിനെതിരെയുള്ള സമരത്തിൽ ജമ്മു ഡിവിഷനിലെ പൊതുഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചു വാഹന സമരം ഏറ്റവും അധികം ബാധിച്ചത് ഗവൺമെന്റ് ജീവനക്കാരെയും വിദ്യാർത്ഥികളെയും ആണ് ടോൾ ബൂത്തുകൾ ചുമത്തുന്ന നികുതി തങ്ങൾക്ക് താങ്ങാവുന്നതിൽ അപ്പുറമാണെന്ന് വാഹന ഉടമകൾ പറഞ്ഞു

അക്രമം അഴിച്ചുപ്പിടുന്നവർക്കെതിരെ ശക്തമായ നടപടിയുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു ഇന്നലെ മൂന്ന് ലഷ്കർ ഇ തൊയ്ബ ഭീകരവാദ്രികൾ ്കൊല്ലപ്പെട്ട അനന്ത്നാഗ് ജില്ലയിലെ ബിജ്ബെഹ്റ മേഖല സന്ദർശീച്ച് ശേഷം സംസാരിക്കുകയായിരുന്നു പോലീസ് മേധാവി

വിശദാംശങ്ങളുമായി ശ്രീലത

ഈ റെയിൽവേ ലൈനുകൾ ഇരുരാഷ്ട്രങ്ങളും തമ്മിലുള്ള ആശയ വിനിമയം വർദ്ധിപ്പിക്കുന്നതിന് ബംഗ്ലാദേശ് റെയിൽവേയ്ക്ക് സാമ്പത്തിക പുറമെ ലാഭം ഉണ്ടാക്കുമെന്നും ശ്രീമതി ഷേഖ് ഹസീന പറഞ്ഞു

ഷഹബാസ്പൂരിനെയും ഹൽദിബാരിയേയും ചിൽഹാട്ടിയുമായി ബന്ധിപ്പിക്കുന്ന കരിംഗഞ്ച് മഹിശാസൻ എന്നീ രണ്ട് ട്രെയിൻ കൂടി സർവ്വീസ് നടത്തുന്നുണ്ട്

ന്യൂസ്ഡെസ്ക്ആകാശവാണി

നാളെ ആലപ്പുഴ സന്ദർശിക്കുന്ന് രാജദമ്പതികൾ ആംസ്റ്റർഡാമിലേക്ക് പോകാനായി വൈകിട്ട് കൊച്ചിയിൽ മടങ്ങിയെത്തും

ഇരു രാഷ്ട്രങ്ങൾക്കും ഇടയിൽ വലിയ സാമ്പത്തിക സാധ്യതകൾ ഉണ്ടെന്ന് മാലിദ്വീപ് സാമ്പത്തിക വികസന മന്ത്രി ഫയസ്സ് ഇസ്മായേൽ മാലിയിൽ ഇന്ത്യൻ എക്സ്പോയുടെ ഉദ്ഘാടന ചടങ്ങിൽ പറഞ്ഞു

മാലിദ്വീപ് പ്രസിഡന്റ് ഇബ്രാഹിം മുഹമ്മദ് സോലിഹും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിലുള്ള അടുത്ത ബന്ധം ഇരുരാജൃങ്ങളുടെയും പുരോഗതിയിക്ക് കാരണമായതായും മാലിദ്വീപ് മന്ത്രി പറഞ്ഞു

ശ്രീലങ്കൻ കരസേന കമാൻഡർ ലഫ്റ്റനന്റ് ജനറൽശാവേന്ദ്ര സിൽവയുടെപ്രസ്താവന ഉപയോഗിച്ച് ശ്രീലങ്ക പൊതുജന പെരമുന പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഗോദഭയ രാജപക്സേ നൽകിയ പത്ര പരസ്യത്തെ ശ്രീലങ്കൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിമർശിച്ചു

പരസ്യപ്രചാർണ്ട് മറ്റെന്നാൾ അവസാനിക്കും

കോൺഗ്രസ് നേതാവ് എ

ആന്റണിയും സി

ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനും മുഖ്യമന്ത്രി പിൺറായി വിജയനും ഇന്ന് അരൂരിൽ രണ്ടു പൊതുയോഗങ്ങളിൽ സംസ്ഥാരിക്കും

ജെ പി സംസ്ഥാന പ്രസിഡന്റ് പി

ശ്രീധർൻപിള്ള ഇന്ന് വട്ടിയൂർക്കാവിൽ പ്രചാരണം നടത്തും നാളെ സി

ഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും വി

മഞ്ചേശ്വരത്ത് കെ

സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ വി

സുധീരൻ ബി ജെ പി നേതാവ് കുമ്മനം രാജശേഖരൻ എന്നിവർ ഇന്നെത്തും